എ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് പറ്റ്നാസാഹിബിൽ മത്സരിക്കും അസമിൽ എ ഐ

ഡി

സുൽത്താൻ അസലം ഷാ കപ്പ് ഹോക്കി ടൂർണമെന്റിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ഇന്ത്യ ജപ്പാനെ പരാജയപ്പെടുത്തി

ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യൻ ചെന്നൈ സൂപ്പർ കിംഗ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും

പാറ്റ്നയിൽ ബി ജെ പി ജെ

യു എൽ

പി എന്നീ പാർട്ടികളുടെ സംസ്ഥാന പ്രസിഡന്റുമാർ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് പാട്നാ സാഹിബ് മണ്ഡലത്തിൽ നിന്നും കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് മത്സരിക്കുക്ടുമന്ന് ബി ജെ പി വക്താവ് ഭൂപേന്ദ്ര യാദവ് വൃക്തമാക്കും ഇത്ത്വണ ഹാജിപ്പൂർ മണ്ഡലത്തിൽ നിന്നും എൽ

ഷി ്ട്രേന്താവ് രാം വിലാസ് പാസ്വാൻ മത്സരിക്കുന്നില്ല അദ്ദേഹൃത്തിന്റെ സഹോദരനും പാർട്ടിയുടെ സംസ്ഥാന ഫ്സിഡൻറുമായ പശുപതി കുമാർ പരസ് ഈ സീറ്റിൽ മത്സരിക്കും പ്രഗറിയ സീറ്റിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല നവാഡ്ാ നിയമസഭാസീറ്റിൽ ജെ

യു സ്ഥാനാർത്ഥിയായി കൌശർ യാദവ് മത്സരിക്കും ഡഹ്റി നിയമസഭ സീറ്റിൽ ബി ജെ പി മത്സരിക്കും

ജെ

കൂടാതെ ആന്ധ്രാപ്രദേശിലെയും ഒഡിഷയിലെയും നിയമഭാ തെരഞ്ഞെടുപ്പിലേക്കുളള രണ്ടാമത്തെ ലിസ്റ്റും ബി ജെ

ഡി

ജെ പി സ്ഥാനാർത്ഥിയായി കെ

ഇന്ന് ബി ജെ

തെലങ്കാനയിൽ സോയം ബാബു റാവു അദിലാബാദ് മണ്ഡലത്തിലും ഡോ ഭഗവത് റാവു ഹൈദ്രാബാദിലും വസുദേവ റാവു ഖമ്മം സീറ്റിലും മത്സരിക്കും ഉത്തർപ്രദേശിൽ കൈരാനാ സീറ്റിൽ പ്രദീപ് ചൌധരിയും നാഗ്നാ സീറ്റിൽ ഡോ

വെസ്റ്റ് ബംഗാളിലെ ജങ്കിപൂർ സീറ്റിൽ മഫൂജാ ഖട്ടൂൺ ആണ് ബി ജെ

ജെ

ജെ പിയിലെ രണ്ട് സിറ്റിംഗ് എം പിമാർ ഇത്തവണയും മത്സരരംഗത്ത്

ജെ

പാർട്ടിയിൽ നിന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വരാനിരിക്കെയാണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥ് കോൺഗ്രസ് കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം പ്രഖ്യാപിച്ചത്

വിശദാംശങ്ങളുമായി പ്രസാദ് നീലേശ്വരം

ഐ

ഇത്തരം കുറ്റകൃത്യങ്ങ ൾക്ക് ഇതിനോടകം തന്നെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇവരുടെ വസ്തുവകകൾ പിടിച്ചെടുക്കാനും മരവിപ്പിക്കാനുമുളള നടപടി തുടങ്ങിയിട്ടുണ്ടെന്നും എൻഫ്പ്മ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞു അന്വേഷണത്തിന്റെ ആദ്യുക്യത്തിൽ ഏഴുകോടിയിലേറെ രൂപയുടെ ഭീകരവാദ ധന നിക്ഷേപമാണ് കണ്ടെത്തിയത് ആദ്യ നടപടി എന്നനിലയിൽ ഗ്യൂരുഗ്രാമിലെ സാഹൂർ അഹമ്മദ് ഷാഹ് വതാലിയുടെ ബംഗ്ലാവ് കണ്ടുകെട്ടാൻ തീരുമാനമായി രാജ്യത്തെ ഭീകരവാദ ധന നിക്ഷേപകർക്കുളള മുഖ്യ ഇടനിലക്കാരാനയ വതാലി നിലവിൽ തിഹാർ ജയിലിലാണ് നിരോധിത തീവ്രവാദ സംഘടനയായ ഹിസാബ് ഉൾ മുജജാഹിദ്ദീൻ തലവനായ സെയ്ദ് സലാഹുദ്ദീൻ ജമ്മാത് ഊ ദാവാ ഹാഫിസ് സെയ്യിദ് തുടങ്ങിയവരിൽ നിന്നും ഇയാൾ പണം സ്വീകരിച്ചതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചുണ്ടിക്കാണിക്കുന്നു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ധനികരുടെ സമ്പത്തിന്റെ കാവൽക്കാരനാണ് ശ്രീ

ലോക്സഭ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനുശേഷം ബീഹാറിൽ സംഘടിപ്പിച്ച ആദ്യ തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ രാഹുൽ ഗാന്ധി

ജെ പി മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ ശ്രീ

കഴിഞ്ഞ അഞ്ച് വർഷ കാലയുളയിൽ രാജ്യത്തെ കർഷകർക്കും തൊഴിലാളികൾക്കും യൂട്ടിതൊന്നും ചെയ്യാത്ത ഗവൺമെന്റായിരുന്നു മോദിയുട്ടേതെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി റഫേൽ വിമാന ഇടപാട് വിഷ്യത്തിലും ഗവൺമെന്റിനെ വിമർശിച്ചു

ഐ

ചെന്നൈ എം

എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ഇന്ത്യ ജ്യിച്ചത്

മലേഷ്യ കാനഡ പോള ണ്ട് ജപ്പാൻ കൊറിയ എന്നിവരാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന മറ്റ് ടീമുകൾ കഴിഞ്ഞ വർഷം ചാമ്പ്യന്മാരായ ആസ്ട്രേലിയ ഇത്ത വണത്തെ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല

നാല് ജുഡീഷ്യൽ അംഗങ്ങളെയും മറ്റ് നാലുപേരെയും രാഷ്ട്രപതി ലോക്പാലിൽ അംഗങ്ങളായി നിയമിച്ചു കൂടൂതൽ വിവരങ്ങളൂമായി പ്രസാദ് നീലേശ്വരം

സുപ്രീംകോടതി മുൻ ജഡ്ജിയായ ജസ്റ്റിസ് പിനാകി ചന്ദ്രഘോഷിനെ രാജ്യത്തെ ആദ്യ ലോക്പാലായും അഴിമതി വിരുദ്ധ ഓംബുഡ്സ്മാനുമായും ചൊവ്വാഴ്ചയാണ് നിയമിച്ചത് നാല് ജുഡീഷ്യൽ അംഗങ്ങളെയും മറ്റ് നാലുപേരെയും ഇതോടൊപ്പം ലോക്പാലിൽ രാഷ്ട്രപതി നിയമിച്ചു മുൻ ചീഫ് ജസ്റ്റിസുമാരായ ദിലീപ് ബി ബോസ്ലെ പ്രദീപ് കുമാർ മൊഹന്തി അഭിലാഷ കുമ്പൂരി ഛത്തീസ്ഗഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അജയ്കുമാർ ത്രിപാഠി എന്നിവരാണ് ജുഡീഷ്യൽ അംഗൃങ്ങൾ സശസ്ത്ര സീമാബെല്ലിന്റെ ആദ്യ വനിത്യ് അർധ്യക്ഷ അർച്ചനാ രാമസുന്ദരം മഹാരാഷ്ട്ര മുൻ ചീഫ് സ്ട്രികട്ടറി ദിനേശ് കുമാർ ജൈൻ മുൻ ഐ

എസ് ഉദ്യോഗ്ലിസ്മൻ മഹേന്ദർ സിംഗ് മുൻ ഐ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഡോ റാം മനോഹർ ലോഹൃയ്ക്ക് അദ്ദേഹത്തിന്റെ ജയന്തി ദിനത്തിൽ പ്രധാനമന്ത്രി ബ്ലോഗിലൂടെ ആദരാഞ്ജലി അർപ്പിച്ചു

ഗോവയുടെ ചരിത്രത്തിൽ ലോഹൃയുടെ പേര് സുവർണ ലിപികളിൽ എഴുതപ്പെട്ടതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

രാം മനേഹർ ലോഹ്യയുടെ ജന്മവാഷികദിനത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവും അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി ്അർപ്പിച്ചു